ഉടമ്പടി ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ ഇന്ത്യയ്ക്ക് മുന്നേറാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വരുമാന വർധനയ്ക്കും പുതിയി കാർഷിക നിയമങ്ങൾ വഴിയൊരുക്കുമെന്ന് കേന്ദ്രമിന്തി ്പീയുഷ് ഗോയൽ

ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചെന്നൈയിൻ എഫ്

യും തമ്മിൽ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്

യെ നേരിടും

പാരീസ് ഉടമ്പടിയുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചു നടന്ന ആഗോള സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

വന വിസ്തൃതി വർധ നയിലും ജൈവവൈവിധ്യ സംരക്ഷണത്തിലും രാജ്യം പ്രകടമായ നേട്ടം കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു

പാരീസ്ക്കാല്പ്പസ്ഥാ കരാറിന്റെ അഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് ഗ്നടന്ന വെർച്ചൽ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയ്ക്യായിരുന്നു അദ്ദേഹം

ഫിക്കിയുടെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നിലവിലെ സംവിധാനങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ വ്യാപാരം വാണിജ്യം തുടങ്ങിയവയ്ക്കായി പുതിയ അവസരങ്ങൾ കർഷകർക്ക് മുൻപിൽ ഈ നിയമങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഫിക്കിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കൾ വിദഗ്ധർ തുടങ്ങിയവർ നിയമങ്ങളുടെ ഗുണഫലങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണ യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്റ്റാർട്ടപ്പുകളെ ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ച ശ്രീ ഗോയൽ ധന സഹായം അവസരങ്ങൾ തുടങ്ങി എല്ലാ പിന്തുണയും സ്റ്റാർട്ടപ്പൂകൾക്ക് നൽകാൻ ഇന്ത്യൻ വ്യവസായരംഗം തയാറാകണ മെന്നും അഭ്യർത്ഥിച്ചു

ഭാരതീയ കിസാൻ യൂണിയൻ മാൻ വിഭാഗം സംസ്ഥാന നേതാവ് ഗുനി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ന്യൂഡൽഹിയിൽ കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറിനെ സന്ദർശിച്ച് പ്പിന്തൂർന്ന അറിയിച്ചത് കാർഷിക നിയമങ്ങളെ പിന്തുണച്ച് കർഷക നേതാക്കൂൾ നിവേദനം സമർപ്പിച്ചതായി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്ത്കിരോട് സംസാരിച്ച ശ്രീ തോമർ പറഞ്ഞു

ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കേന്ദ്ര സ്ഥാനമായ പാർലമെന്റ് സംരക്ഷിക്കാനായി ജീവത്യാഗം ചെയ്ത ധീര യോദ്ധാക്കളെ രാജ്യം ആദരവോടെ സ്മരിക്കുന്നതായും ഭീകരവാദ പ്രവർത്തനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യ നടപടികൾ സ്വീകരിച്ചുവരുന്നതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി പാർലമെന്റ് സംരക്ഷിക്കാനായി സ്വന്തം ജീവൻ ബലികഴിച്ച പാർലമെന്റ് ജീവനക്കാർ സുരക്ഷാ സേനാംഗങ്ങൾ എന്നിവരുടെ ധീരതയും ആത്മാർത്ഥതയും നമ്മ എന്നും പ്രചോദിപ്പിക്കുന്നത് ആണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു

രോഗികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്

പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് ഏർ പ്പെടുത്തി

ചബഹർ തുറമുഖത്തെ ചരക്ക് നീക്കത്തിന് ഉള്ള ഒരു പ്രധാന കേന്ദ്രമായി ഉപയോഗിക്കാൻ ഉസ്ബക്കിസ്ഥാൻ താൽപർട്ട്ട് പ്രകടിപ്പിച്ചതിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു മേഖലയിലെ പ്ലൂപ്പ്സായ വ്യാപാര സമൂഹത്തിന് കൂടുതൽ സാമ്പത്തിക അവസർങ്ങൾ ഇത് തുറന്നുകൊടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷ് പ്രക്കടിപ്പിച്ചു

ഇതുമായി ബന്ധപ്പെട്ട കരാർ ഇസ്രായേലിന്റെയും ഭൂട്ടാന്റെയും നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയിൽ ഒപ്പുവച്ചതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജല വിനിയോഗം കൃഷി ആരോഗൃ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ സംയുക്ത കർമ്മ പദ്ധതിക്ക് രൂപം നൽകാൻ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായി

ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല

ജെ

ഇതുവരെയുള്ള കണക്ക് പ്രകാരം ജമ്മു കശ്മീരിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്

ദേശീയ ദൂരന്ത നിവാരണ അതോറില്പ് ജോ്യിന്റ് സെക്രട്ടറി രമേശ് കുമാർ ഗാണ്ഡയുടെ നേതൃത്വത്തിലുള്ള ആറ് അംഗ സംഘമാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായ്ട്രി എത്തുന്നത് ഇന്ന് വൈകിട്ട് കേന്ദ്ര സംഘവുമായി നടത്തുന്നു കൂടിക്കാഴ്ചയിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരുട് ക്കാൾനഷ്ടങ്ങൾ വിശദീകരിക്കും സംഘം മൂന്ന് പ്രത്യേക ടീമുകളായി സംസ്ഥാനത്തെ വിവിധ പ്രളയബാധചഃ മേഖലകളും സന്ദർശിക്കും

ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരി ക്കെയാണ് അറസ്റ്റ്

രാ ഷ്ട്രീയ സാമൂഹിക സാംസ്കാരികരംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അനുശോചനം അറിയിച്ചു ഖബറടക്കം ഉച്ചയ്ക്കുശേഷം തിക്കോടിയിലെ ജുമാ മസ്ജിദ് ഖബർ സ്ഥാനിൽ നടക്കും

എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് അഞ്ചിന് ഗോവയിലെ വാസ്കോ തിലക് ്ലമൈതാൻ സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏച്ഐന്നെയിൻ എഫ്